കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തും

കുടിയേറ്റക്കാരെ വിദേശത്തേക്ക് അയക്കുന്ന അനധികൃത ഏജൻസികൾക്കെതിരെ കർശന നടപടിയെന്ന് കേന്ദ്ര വിദേശകാരൃ സഹമന്ത്രി പുതിയ എമിഗ്രേഷൻ മാനേജ്മെന്റ് ബിൽ ഉടനെന്നും വി മുരളീധരൻ

മഹാമാരിയെ നേരിടുന്നതിന് രാജ്യം സ്വീകരിച്ച നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശനിയാഴ്ച പ്രധാനമന്ത്രി ഉന്നതതലയോഗത്തിൽ വിലയിരുത്തിയിരുന്നു

രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ കോറോണ ബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമർഹിക്കുന്നു മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് നിലവിൽ നിരവധി ഇളവുകളോടെ രാജ്യം അഞ്ചാംഘട്ട ലോക്ഡൌണിലാണ് അൺലോക് ഒന്നിൽ രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് നിരവധി ഇളവുകളാണ് ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്

രോഗം ബാധിച്ചുവരിൽ പകുതിയിലധികം പേർ രോഗം ഭേദമായി ആശുപത്രികൾ വിട്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്

അതിനിടെ രാജ്യത്തെ കോവിഡ് പരിശോധന നിരക്കുകളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായി ഐസിഎംആർ വ്യക്തമാക്കി

നെഗറ്റീവായവർക്ക് പിന്നീട് ആർ

ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന സർവ്വകക്ഷിയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഞായറാഴ്ച നടന്ന ഉന്നതതലയോഗത്തിലെ തീരുമാനങ്ങൾ ശ്രീ

ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രസർക്കാർ കൈകൊണ്ട തീരുമാനങ്ങൾ നടപ്പാക്കാൻ പാർട്ടി പ്രവർത്തകരെ ചുമതലപ്പെടുത്തണമെന്ന് ്യൂശ്ലീ

അതേസമയം ഡൽഹിയിലെ എൽ

കോവിഡ് രോഗികളുടെ നിരീക്ഷണത്തിനാവശൃമായ സംവിധാനങ്ങൾ വാർഡുകളിൽ സജ്ജമാക്കാൻ അദ്ദേഹം ഡൽഹി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നല്കി

പരമേശ്വരൻ

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ മടക്കം ഏതാണ്ട് പൂർത്തിയായി വരുന്നതായി റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ്കുമാർ യാദവ് അറിയിച്ചു

വിവിധ സംസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ തിരികെ എത്തിക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണെന്നും ശ്രീ

കുവൈറ്റ് ഷാർജ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നും ഇതിനു പുറമെ വിമാനങ്ങൾ വന്നുചേരും അതിനിടെ ഇന്നലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനതാവളങ്ങളിൽ വിവിധ രാജൃങ്ങളിൽ നിന്നായി ആറ് വിമാനങ്ങൾ പ്രവാസികളുമായി എത്തിച്ചേർന്നു

അമേരിക്കയിൽ ഇതുവരെ ഇരുപത്തിയൊന്നര ലക്ഷത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്കയ്ക്ക് പിന്നിൽ